ഡി

ഹരിവംശ് നാരായണനും കോൺഗ്രസിലെ ബി

ഹരിപ്രസാദും സ്ഥാനാർത്ഥികൾ

ക്രിമിനൽ കേസ് വിചാരണ വേളയിലെ ഏതു ഘട്ടത്തിലാണ് ന് നിയമനിർമ്മാണ സഭാംഗം അയോഗൃനാക്കപ്പെടുകയെന്ന കേസിൽ സുപ്രീം കോടതി ഇന്ന് വാദം തുടങ്ങും

മഴക്കെടുതികൾ വിലിയിരുത്താനെത്തിയ കേന്ദ്രസംഘം ഇന്ന് മുഖ്യമന്ത്രിയെ സന്ദർശിക്കും

എ സ്ഥാനാർത്ഥി ജെ

യു വിലെ ഹരിനാരായണൻ സിംഗും പ്രതിപക്ഷ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബി

ഹരിപ്രസാദും തമ്മിലാണ് മത്സരം ഇരുവരും ഇന്നലെയാണ് പത്രിക സമർപ്പിച്ചത്

ജെ

ബി

സമഗ്രമായ അന്വേഷണം ആവശ്യമുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രാഥമിക അന്വേഷണ പരിധിയിലുള്ളത് അന്വേഷണം സി ബി

അതിനെ തുടർന്ന് ഐ ടി മന്ത്രാലയം മാർച്ചിൽ അനലറ്റിക്കയ്ക്ക് കത്തെഴുതിയിരുന്നു

പ്ലൂഷ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്

ബ്രിട്ടീഷ്കാരെ പുറത്താക്കാൻ തീവ്രയത്നം നടത്താനുള്ള ആഹാനമായിരുന്നു അത്

ആഗസ്റ്റ് ക്രാന്തിദിനം എന്ന പേരിലാണ് എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നത് ക്വിറ്റ് ഇന്ത്യാ ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി വാർത്താ വിഭാഗം പുതിയ ഇന്ത്യ സ്വാതന്ത്യത്തിന്റെ പ്രസക്തി എന്ന പേരിൽ ഇന്നു രാത്രി പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യും

വടക്കൻ കേരളത്തിൽ മഴ ശക്തിപ്രാപിച്ചതോടെ നാശനഷ്ടങ്ങളും വ്യാപകമായി ഉരുൾപൊട്ടലിനെ തുടർന്ന് കണ്ണൂരിൽ രണ്ടു പേർ മരിച്ചു കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

കണ്ണൂർ ഇരിട്ടിയിൽ ഉരുൾപൊട്ടലിൽ രണ്ടുപേർ മിരിച്ചു

ഇവിടെ എട്ട് ദ്യുരിതാശ്ചാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്

കോഴിക്കോടും ഉരുൾപ്പൊട്ടലുണ്ടായി കൊല്ലം തെന്മലയിൽ പരപ്പാർ ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുമെന്ന് അധികൃതർ അറിയിച്ചു

കനത്ത മഴയെത്തുടർന്ന് വയനാട് ഇടുക്കി മലപ്പുറം ജില്ലകളിൽ വിദ്യാഭ്യാസം സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്

മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും ഇടമലയാർ ഡാമിന്റെ നാല് ഷട്ടറുകൾ തുറന്നു

കൊച്ചി ധനുഷ്കോടി ദേശീയ പാതയിൽ അടിമാലിക്കടുത്ത് മണ്ണിടിഞ്ഞ് ഒരു കുടുംബത്തിലെ ആറുപേർ മണ്ണിനടിയിൽ പെട്ടു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

അധികമായി രണ്ട് സംഘത്തെ കൂടി വടക്കൻ കേരളത്തിലെ പ്രതികരണ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയോട് ആവശ്യപ്പെട്ടു

മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ചീഫ് ജസ്റ്റിസ് ഡി

ഭോസ്ലെയുടെ നേതൃത്വത്തിലുള്ള ബഞ്ചാണ് ഇന്നലെ സ്വമേധയാ ഇതു സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്

സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മൂഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവ്വഹിക്കും വിപണന കേന്ദ്രങ്ങളിൽ എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ലഭിക്കും

തോമസ് ഐസക്കാണ് ജീവന്ക്കാരുടെ ബോണസ്സിന്റെയും പെൻഷൻകാരുടെ ഉത്സവബത്തയുടേയും വിവരം അറിയിച്ചത്

എൻ എം ആർ ജീവനക്കാർ സീസണൽ വർക്കർമാർ പാർട്ട്ടൈം അധ്യാപകർ പാർട്ട്ടൈം കണ്ടിജന്റ് ജീവനക്കാർ എന്നിവർക്കും ബോണസിന് അർഹതയുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആദ്യ മത്സരം ജയിച്ച ഇംഗ്ലണ്ട് പരമ്പരയിൽ മുന്നിലാണ് കേസുമായി ബന്ധപ്പെട്ട് മടങ്ങിയതിനാൽ ഇംഗ്ലണ്ടിന്റെ ഓൾ റൌണ്ടർ ബെൻ സ്റ്റോക്സ് രണ്ടാം ടെസ്റ്റിൽ കളിക്കില്ല

ആദ്യ ടെസ്റ്റിലെ പരാജയത്തെ തുടർന്ന് ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ചേതേശ്വർ പൂജാരയും രവീന്ദ്ര ജഡേജയും ടീമിൽ ഇടം നേടി

പീസ് പാർക്കിൽ ഇന്ന് പ്രത്യേക അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്

ബോംബാക്ട്രമണത്തിന് ഇരയായവരുടെ കുടുംബാംഗങ്ങളെ അദ്ദേഹം സന്ദർശിക്കും

അമേരിക്കൻ ഭരണകൂടം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അടുത്തമാസം മുതൽ ഭീമമായ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു

ബ്രിട്ടീഷ് പൌരൻ സെർജി സ്ക്രിപാലിനെയും മകൾ യൂലിയയെയും രാസായുധം പ്രയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനാണ് ഉപരോധമെന്ന് യു